ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവശേഷിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതം

ഐ

സി ടെസ്റ്റ് റാങ്കിംഗിൽ ഇന്ത്യ ഒന്നാംസ്ഥാനം നിലനിർത്തി ഏകദിനത്തിൽ ഇംഗ്ല ് ഒന്നാമത്

മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതിൽ ചൈന അവരുടെ ഭാഗം വിശദീകരിച്ചിട്ടു ്്

പുൽവാമ ഭീകരാക്രമണം മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതിന് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് വഴി തിരിച്ചടിയാണ് ഉ ായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മസൂദിന്റെ സ്വത്തുക്കളും സമ്പത്തും മരവിപ്പിക്കാൻ പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളും ബാധ്യസ്ഥരാണെന്നും ശ്രീ രവീഷ് കുമാർ പറഞ്ഞു

കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമനുസരിച്ച് മുംബൈ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്

ഒഡീഷയിലെ ഗഞ്ജം ഗജപതി കുർദ പുരി ജഗദ്സിംഗ്പൂർ കേന്ദ്രപാഡ ഭദ്രൽ ജെയ്പൂർ ബാലസോർ എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റ് വീശുക

ഒഡീഷയിൽ തിരമാലകൾ ഒന്നരമീറ്റർ ഉയരുമെന്നും മുന്നറിയിപ്പു ് തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നട്പടികൾ പുരോഗമിക്കുന്നു

പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വിനോദ സഞ്ചാരികൾക്ക് മടങ്ങാനായി മൂന്ന് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയിട്ടു ്

ജന്മങ്ങൾ ഭയപ്പെടേ ന്നും രക്ഷാപ്രവർത്തനത്തിനായി എല്ലാം സജ്ജമാണെന്നും മുഖ്യമന്ത്രി നവീൻ പട്നായിക് പറഞ്ഞു തീരസംരക്ഷണ സേന നാവിക സേന കര സേന ്രിഎന്നിവ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടു ് സംസ്ഥാന ഉദ്യോഗസ്ഥരുമായി ചർച്ചു ചെയ്ത് നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ഗവൺമെന്റിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടു ഫോനി ചുഴലിക്കാറ്റിന്റെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇന്ന് ഉന്നതതലയോഗം വിളിച്ചിരുന്നു

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നു മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിൽ ബിജെപി അധ്യക്ഷൻ അമിത്ഷാ റാലിയെ അഭിസംബോധന ചെയ്തു

നോട്ട് അസാധുവാക്കിയത് വഴി ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഇല്ലാതായെന്നും തൊഴിൽ നഷ്ടമു ായെന്നും ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു ്കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ന്യായ് പദ്ധതി വഴി പാവപ്പെട്ടവർക്ക് നോരിട്ട് പണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യാനും ദക്ഷിണേഷ്യയിൽ സുരക്ഷയും സ്ഥിരതയും കൊ ുവരാനുളള അന്താരാഷ്ട്ര സമൂഹത്തിന്റ് പ്രതിജ്ഞാബദ്ധതയുമാണ് ഇതിലുടെ തെളിയുന്നതെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് ഗാരറ്റ് മാർകി പറഞ്ഞു മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതിൽ ഐകൃരാഷട്ര രക്ഷാസമിതിയെ അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഐകൃരാഷ്ട്ര സഭയുടെ നടപടിയെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോയും സ്വാഗതം ചെയ്തു

നിരവധി ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കരങ്ങളുടെ ന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മോർഗൻ ഒർട്ടാഗസ് ചൂ ിക്കാട്ടി ദക്ഷിണേഷ്യയിലെ സ്ഥിരതയ്ക്ക് കടുത്ത ഭീഷണിയാണ് ജെയ്ഷെ മുഹമ്മദ് എന്നും അദ്ദേഹം പറഞ്ഞു

ഇപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് ചൈനയ്ക്ക് വഴങ്ങേ ി വന്നതോടെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ ഫലം ക ത്

പഞ്ചായത്തംഗം എൻ

സലീന മുൻ പഞ്ചായത്തംഗം കെ

പത്മിനി എന്നിവർക്കെതിരെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് തെരഞ്ഞെുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു

എന്നാൽ ഇന്ത്യയുടെ സായി പ്രണീത് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി ചൈനയുടെ ലിൻഡാനോട് പ്രണീത് പരാജയപ്പെട്ടു പുരുഷ വിഭാഗം ഡബിൾസിൽ മനു അത്രി സുമീത് ബി റെഡ്സി സഖ്യം മലേഷ്യയുടെ ഗോ വി ഷെം ടാൻ വി കിയോങ് സഖ്യത്തോട് പരാജയപ്പെട്ട് പുറത്തായി

പ്രസംഗം മുഴുവനായും പരിശോധിച്ചതായും ചട്ടലംഘനം ഉ ായിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി മധ്യപ്രദേശിലെ ഷഹ്ദോളിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വിശദീകരണമാവശ്യപ്പെട്ട് കമ്മീഷൻ രാഹുൽഗാന്ധിക്ക് നോട്ടീസ് അയച്ചു

അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിന് വേ എല്ലാ തെളിവുകളും ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് കൈമാറിയിരുന്നു